രാജ്യത്ത് ട്രെയിൻ സ്ർവ്വീസുകൾ നിർത്തിവയ്ക്കില്ലെന്ന് ന് റെയിൽവേ ബോർഡ് ചെയർമാൻ

സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന ഉപകരണം നാനോ സ്നിഫർ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് പുറത്തിറക്കി

എൽ

ടോസ് നേടിയ ബാംഗ്ലൂർ മുംബൈയെ ബാറ്റിംഗിന് അയച്ചു

ഹരേകൃഷ്ണ മഹ്താബ് രചിച്ച ഒഡിഷ ഇതിഹാസിന്റെ ഹിന്ദി പതിപ്പ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കവെയ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് വടക്ക് കിഴക്കൻ സ്റ്സ്ഥാനങ്ങളുടെയും കിഴക്കൻ പ്രദേശത്തിന്റെയും വികസന്ദത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾക്ക് ്തുടക്കമിട്ടിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സ്ർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഭർതൃഹരി മഹ്താബ് എം പിയും ചട്ടങ്ങിൽ സംബന്ധിച്ചു

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പുറമെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനായി വി

കോവിഡ് കണക്കിലെടുത്ത് ഒരു ബൂത്തിൽ പരമാവധി ആയിരം പേർക്കാണ് വോട്ട് ചെയ്യാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്

ശരീരോഷ്മാവ് കൂടുതലുള്ളവർക്ക് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ ടോക്കൺ നൽകും

ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഇന്ത്യൻ സെക്യൂലർ ഫ്രണ്ടും ചേർന്ന് സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്

ഇതോടൊപ്പം ആന്ധ്രാ പ്രദേശിലെ തിരുപ്പതി കർണാടകത്തിലെ ബെൽഗാം ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമായി നടക്കുന്നുണ്ട്

രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ഝാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മിസോറാം നാഗാലാന്റ് ഒഡീഷ തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമായതോടെ പ്രചാരണം ആരംഭിച്ചു അതേസമയം ഏഴും എട്ടും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മപരിശോധന പൂർത്തിയായി

ജെ

പരാജയം ഉറപ്പായതിനാലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്രസേനയെ കുറ്റപ്പെട്ടുത്തുന്നതെന്നും കൊൽക്കത്തയിൽ വാർത്താ സമ്മേളനത്തിൽ ശ്രീ അമിത് ഷാ പറഞ്ഞു

ഐ ടി ബോബെയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പായ നാനോ ടെക്നോളജീസാണ് പുതിയ ഉപകരണം നിർമ്മിച്ചത്

ഹൈദരാബാദിലെ ഗാന്ധി ആശുപത്രി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ കുത്തിവയ്പെടുത്ത് വാക്സിനേഷൻ ഉത്സവം വലിയ വിജയമാക്കി തീർക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

പെട്രോൾ പമ്പുകൾ മരുന്ന് കടകൾ എൽ

ജി

മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് പുതുക്കിയ പരീക്ഷാ തീയതി വൈകാതെ പ്രഖ്യാപിക്കും

കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രതിരോധ മരുന്നിന് ക്ഷാമമില്ല എന്നാൽ ഈ സംസ്ഥാനങ്ങൾ ആരോഗ്യ സുരക്ഷയിൽ ജാഗ്രത കാട്ടണമെന്ന് മന്ത്രി പറഞ്ഞു

കോഴിക്കോട് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം കോട്ടയം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

വോയ്സ് യാത്ര ചെയ്യാൻ ആവശ്യത്തിന് ട്രെയിനുകൾ ഉണ്ടാകുമെന്ന് റെയിൽവെ ബോർഡ് ചെയർമാൻ ഉറപ്പ് പറഞ്ഞു കൂടുതൽ ട്രെയിൻ ആവശ്യമുണ്ടെങ്കിൽ അതും ഏർപ്പാടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

യാത്രക്കാർ അധികമായതിനാൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായി യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ലെന്നും ശ്രീ സുനീത് ശർമ്മ പറഞ്ഞു മഹാരാഷ്ട്രയിൽ് ട്രെയിൻ സർവിസുകൾ നിർത്തിവയ്ക്കണമെന്നോ വെട്ടിക്കുറയ്ക്കണമെന്നോ ഉള്ള ആവശ്യം ഉയർന്നിട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി രാജ്യത്ത് കോവിഡ് വ്യാപനമേറിയ സാഹചര്യത്തിൽ ഇനിയും ലോക്ഡൌൺ ഉണ്ടാകുമെന്ന ആശങ്കയിൽ കുടിയേറ്റ തൊഴിലാളികൾ ധാരാളമായി സ്വദേശത്തേക്ക് മടങ്ങുന്നത് കണക്കിലെടുത്താണ് റെയിൽവേ ബോർഡ് ചെയർമാന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു മാസം നീണ്ട ചികിത്സക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ആശുപത്രി വിട്ടത്

ജലീൽ ് ബന്ധുവിനെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്ന് ലോകായുക്ത കണ്ടെത്തിയതായി റിപ്പോർട്ട്

തുടർ നടപടികൾക്കായി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും സൂചനയുണ്ട്

മുഹമ്മദ് ഷാഫിയാണ് ഇത് സംബന്ധിച്ച് ലോകായുക്തയിൽ പരാതി നൽകിയത്

ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ടോസ് നേടിയ ബാംഗ്ലൂർ മുംബൈയെ ബാറ്റിംഗിന് അയച്ചു